വൃക്തിയും പ്രതിജ്ഞയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളത്തെ ക്ടേരളം ലഹരി മുക്ത കേരളം ബോധവൽക്കരണ പര്യ്പ്പാട്ടിക്ക് സംസ്ഥാനത്ത് തുടക്കമായി

കൊു പോകാനുള്ള തിയ്യാറെടുപ്പുകൾ പൂർത്തിയാതായി മന്ത്രി കടകംപള്ളി സ്കൂർരേന്ദ്രൻ ഇടമൺ കൊച്ചി പവർ ഹൈവേ ഉദ്ഘാടനം നാളെ

തുടക്കം

പുനപരിശോധനാ ഹർജി നൽകാൻ മുസ്തീം വൃക്തി നിയമ ബോർഡ് തീരുമാനിച്ചു

മുന്നിൽ തൊട്ടു പിന്നിൽ പാലക്കാട്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എൻ

ജയചന്ദ്രൻ

പട്ടികജാതി പട്ടികവർഗ്ഗു കോളനികളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി കലാസാംസ്കാരിക പരിഷ്ട്ടികൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

വിമുക്തി ലഹരി വർജ്ജന മിഷന്റെ ആഭിമു്ഷ്യ്ത്തിൽ നാളത്തെ കേരളം ലഹരി വിമുക്ത നവകേരളം എന്ന സ്ന്ദേശവുമായി സംഘടിപ്പിച്ചിട്ടുള്ള തീവ്ര ബോധവത്ക്കരണ പരിപാടിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം അടിമാലിയിൽ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല ശബരിമല തീർത്ഥാടന കാലം കുറ്റമറ്റ രീതിയിൽ മൂന്നോട്ട് കൊു പോകാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്ന അദ്ദേഹം നിലയ്ക്കലിൽ ആവശ്യത്തിന് വാഹന പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട് ചെറുവാഹനങ്ങൾ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് കയറ്റി വിടും ഇടമൺ കൊച്ചി ഇൻട്രോ സംസ്ഥാനത്തിന്റെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം ഉറപ്പാക്കുന്ന ഇടമൺ കൊച്ചി പവർ ഹൈവേ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം അടൂരിൽ മന്ത്രി എം എം മണിയുടെ അദ്ധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരും പ്രതിപക്ഷനേതാവും ജനപ്രതിനിധികളും പങ്കെടുക്കും

വി ശ്രൃംഖലയിലൂടെ ഇന്ത്യയുടെ ഏതു ഭാഗത്തുനിന്നും കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കാനാകും കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

ശൈതൃകാല സമ്മേളനം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ക്രിയാത്മകമാക്കാൻ എല്ലാ അംഗങ്ങളും സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ചുചേർത്ത സർവ്വകക്ഷിയോഗത്തി ലാണ് പ്രധാനമന്ത്രി അംഗങ്ങളോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത് അതിനിടെ പ്രതിപക്ഷം ഉൾപ്പടെ കൊു വരുന്ന എല്ലാ പ്രശ്നങ്ങളും ചർച്ചചെയ്യാമെന്ന സർവ്വകക്ഷിയോഗത്തിലെ ഗവൺമെന്റ് വാഗ്ദാനം പലപ്പോഴും പാലിക്കപ്പെടാറില്ലെന്ന് സർവ്വകക്ഷിയോഗത്തിൽ പങ്കെടുത്ത ശേഷം കോൺഗ്രസ് ് നേതാവ് ഗുലാംനബി ആസാദ് പ്രതികരിച്ചു

ഇന്ന് ചേർന്ന ബോർഡ് യോഗത്തിന്റേതാണ് തീരുമാനം മസ്ജിദ് നിർമ്മാണ ത്തിനായി നൽകിയ അഞ്ചേക്കർ ഭൂമി സ്വീകരിക്കേതില്ലെന്നും യോഗം നിലപാടെടുത്തു ബോർഡിലെ ഭൂരിപക്ഷം അംഗങ്ങളും തീരുമാന ത്തിൽ ഉറച്ചുനിന്നു കേരള സർവ്വകലാശാല കേരള സർവകലാശാലയിൽ ചില പരീക്ഷകളിൽ ക്രമരഹിതമായി മോഡറേഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നു വരികയാണെന്നും അന്വേഷണത്തിനു സഹായകരമാകുന്ന തരത്തിലുള്ള വകുപ്പുതല നടപടികൾ മാത്രമാണ് സർവകലാശാല സ്വീകരിച്ചിട്ടുള്ള തെന്നും സർവ്വകലാശാല അറിയിച്ചു

കൂടുതൽ വിശേഷങ്ങളുമായി കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി കെ

തിരഞ്ഞെടുപ്പ് വിജയത്തിന് രാജപകസയേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു

സുധാകരൻ ആലപ്പുഴ ജില്ലാ ജയിൽ കെട്ടിടത്തിന്റെ നിർമാണം നാലു മാസത്തിനു ള്ളിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ ജില്ലാ ജയിലിൽ ജയിൽ ക്ഷേമദിനാഘോഷം ഉദ്ഘടനം ചെയ്ത് സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം

ആന്ധ്ര ഗവൺമെന്റിന്റെ അപ്രായോഗിക നിബന്ധനകളും വ്യവസ്ഥകളും മൂലമാണ് കേരളം പദ്ധതി ഉപേക്ഷിച്ചത് അൻപ്പതിനായിരം ഹെക്ടർ ഭൂമി പാട്ടത്തിനെടുത്ത് സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത് തോട്ടണ്ട് ശേഖരിക്കാനായിരുന്നു പദ്ധതി

ലോൺ തുകയ്ക്ക് നാല് ശതമാനം വാർഷിക പലിശ ഈടാക്കും അഞ്ച് വർഷത്തിനുള്ളിൽ വായ്പ തിരിച്ചടയ്ക്കണം

സ്നേഹിത കോളിംഗ്ബെൽ ഇടുക്കി ജില്ലയിലെ കുടുംബശ്രീയുടെ സ്നേഹിത കോളിംഗ്ബെൽ വാരാ ചരണം മന്ത്രി എം

സമൂഹത്തിൽ ഒറ്റപെട്ടു കഴിയുന്നവർക്ക് പിന്തുണ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹിത കോളിംഗ് ബെൽ കുടുംബശ്രീയുടെ സ്ത്രീ ശിശു സുരക്ഷാ പരിപാടിയായ സ്നേഹിത ജെൻഡർ ഹെല്പ് ഡെസ്ക് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതിയിൽ അയൽക്കൂട്ട പരിധി പ്രദേശത്തെ ഒറ്റപ്പെട്ട വ്യക്തികളെ കത്തുകയും അവർക്ക് വേ സാമൂഹിക പിന്തുണ ഉറപ്പുവരുത്തുകയും ചെയ്യും